പണപ്പെരുപ്പം നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി

ഫ്ളാറ്റുകൾ ഒഴിയാനാവില്ലെന്ന് കാണിച്ച് ഉട്ടമ്കൾ നഗരസഭാ സെക്രട്ടറിക്ക് മറുപടി ്രന്ൽകി പാലാ നിയമസഭാ ്തിർഞ്ഞെടുപ്പിൽ മൂന്ന് മുന്നണി ന് സ്ഥാനാർത്ഥികളുട്ട് മണ്ഡല പര്യടനം തുടരുന്നു

പുലിക്കളി അരങ്ങേറി

പ്രധാന കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണം

നാണയപ്പരുപാ നിയന്ത്രണ വിധേയമാണെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ശ്രീമതി നിർമല സീതാരാമൻ പറഞ്ഞു കയറ്റുമതി മെച്ചപ്പെടുത്തുന്നതിനും പാർപ്പിട മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ് നടപടികളാണ് ധനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ചത് കയറ്റുമതി മേഖലയെ ശക്തിപ്പെടുത്താൻ വായ്പാ മാനദണ്ഡങ്ങൾ പുതുക്കി നിശ്ചയിക്കും

പാർപ്പിട നിർമാണ പദ്ധതികളുടെ നടത്തിപ്പിനായി ഏകജാലക സംവിധാനം ഏർപ്പെടുത്തും

ഫ്ളാറ്റുകൾ ഒഴിയാനാവില്ലെന്ന് കാണിച്ച് ഉടമകൾ നഗരസഭാ സെക്രട്ടറിക്ക് മറുപടി നൽകിയിട്ടുണ്ട് മരട് ഗവർണ്ണർ കൊച്ചിയിലെ മരട് വിഷയത്തിൽ പരസൃ പ്രതികരണത്തിനില്ലെന്നും എന്നാൽ സംഭവം നിരീക്ഷിച്ച് വരികയാണെന്നും ഗവർണ്ണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു വിഷയം കോടതിയുടെ പരിഗണനയിൽ ആയതിനാൽ ഇക്കാര്യത്തിൽ പരിമിതികളുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി

ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ഇക്കാര്യത്തിൽ സി

മരട് നഗരസഭയ്ക്ക് മുന്നിൽ സി

ഐ എം സംഘടിപ്പിച്ച പൊതുജന മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രമേശ് ചെന്നിത്തല കൊച്ചി മരടിലെ ഫ്ളാറ്റ് നിവാസികൾക്ക് നീതി ഉറപ്പാക്കാൻ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ്രമേശ് ചെന്നിത്തല പറഞ്ഞു ഫ്ളാറ്റ് നിവാസികളെ സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെടണമെന്ന് ശ്രീ

മരട് നഗരസഭയ്ക്ക് മുന്നിൽ ഫ്ളാറ്റ് നിവാസികൾ നിരാഹാര സമരം ആരംഭിച്ചിട്ടുണ്ട്

ശക്തമായ ത്രികോണ മൽസരത്തിന്റെ ചൂടിലാണ് തിരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

മുന്നൂറോളം പുലിക്കളിക്കാരാണ് തൃശൂർ നഗരത്തിൽ ഇറങ്ങിയത് മൂന്നു പെൺപുലികളും ഇത്തവണ ഉണ്ടായിരുന്നു

ജില്ലാതല ഓണാഘോഷകമ്മിറ്റിയും തൃശൂർ കോർപ്പറേഷനും സംയുക്തമായാണ് പുലിക്കളി സംഘടിപ്പിച്ചത്

വൈകിട്ട് അഞ്ചിന് വെള്ളയമ്പലം കെൽട്രോൺ ജംഗ്ഷനിൽ ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ ഘോഷയാത്രയ്ക്ക് കാഹളം മുഴക്കുന്ന വാദ്യോപകരണമായ കൊമ്പ് കൈമാറും ഇന്ത്യയുടേയും കേരളത്തിന്റെയും വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും വിവിധ സേനാവിഭാഗങ്ങളുടെ ബാൻഡുകളും ഘോഷയാത്രയിൽ അണിനിരക്കും

കൂടുതൽ വിവരങ്ങളുമായി ആറന്മുളയിൽ നിന്നും ആകാശവാണി പ്രതിനിധി ആർ

കരുവാറ്റ ലീഡിങ്ങ് ചാനലിൽ നടന്ന ജലോത്സവം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ സമ്മാനദാനം നടത്തി സംസ്ഥാനത്തെ വള്ളംകളികളെ കോർത്തിണക്കി ആവിഷ്കരിച്ചിട്ടുള്ള ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ മൂന്നാമത്തെ മത്സരം കൂടിയാണിത്

സൌദി ആക്രമണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ സംസ്കരണ കമ്പനിയായ സൌദി അറേബ്യയിലെ അരാംകോയുടെ രണ്ട് കേന്ദ്രങ്ങളിൽ ഇന്ന് പുലർച്ചെ ഡ്രോൺ ആക്രമണം ഉണ്ടായി ആരാംകോയുടെ ഏറ്റവും വലിയ എണ്ണ സംസ്കരണശാലയായ അബ്ഖ്യാഖിലാണ് ആദ്യ ആക്രമണം ഉണ്ടായത് രണ്ടാമത്തെ ആക്രമണം ഖുറൈസിലെ എണ്ണപ്പാടങ്ങളിലാണ് ഉണ്ടായത്

നാശനഷ്ടങ്ങളെ സംബന്ധിച്ച വ്യക്തമായ റിപ്പോർട്ടുകളില്ല തീ നിയന്ത്രണവിധേയമാണെന്ന് അധികൃതർ അറിയിച്ചു

ബംഗ്ലാദേശിനെ അഞ്ചു റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം ചാമ്പ്യൻമാരായത്

ഇന്ത്യയെ ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര ലക്ഷ്യസ്ഥാനമാക്കുക പ്രതിസന്ധികളും വെല്ലുവിളികളും അതിജീവിച്ച് വിനോദസഞ്ചാരത്തിലൂടെ പുത്തൻ വരുമാനമാർഗങ്ങൾ സൃഷ്ടിക്കുക എന്നിവയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യാം സഹകരണക്കരാർ ഇന്ത്യയും മാലദ്വീപുമായുള്ള സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കേരള ഗവൺമെന്റും റീജിയണൽ കാൻസർ സെന്ററും സംയുക്തമായി മാലദ്വീപിലെ ആരോഗ്യ മന്ത്രാലയവുമായി സഹകരണക്കരാറിൽ ഏർപ്പെടുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ കെ

ശൈലജ കടകംപള്ളി സുരേന്ദ്രൻ എന്നിവരുടെ സാന്നിധ്യത്തിൽ തിങ്കളാഴ്ച കരാറിൽ ഒപ്പിടും നിരവധി പേരാണ് കാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി മാലദ്വീപിൽ നിന്നും കേരളത്തിലെത്തുന്നത് മാലദ്വീപിലെ കാൻസർ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണ് കരാറിന്റെ ലക്ഷ്യം കാൻസർ പ്രതിരോധം കാൻസർ ചികിത്സ രോഗനിർണയ സൌകര്യങ്ങൾ എന്നിവ ലഭ്യമാക്കുന്ന ആശുപത്രികൾ സ്ഥാപിക്കുന്നതിൽ റീജിയണൽ കാൻസർ സെന്റർ മാലദ്വീപ് ആരോഗ്യ മന്ത്രാലയത്തെ സഹായിക്കും രാകേഷ് ശർമ്മ ബഹിരാകാശ പദ്ധതികൾക്കായി ഇന്ത്യ ചെലവഴിച്ച ഓരോ രൂപയുടെയും മൂല്യം തിരിച്ചു ലഭിച്ചിട്ടുണ്ടെന്ന് ആദ്യ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മ പറഞ്ഞു തിരുവനന്തപുരത്തെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പെയ്സ് സയൻസ് ആന്റ് ടെക്നോളജിയുടെപതിമൂന്നാമത് സ്ഥാപകദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം